ജവഹർലാൽ നെഹ്റു സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ മുൻ പ്രസിഡന്റ് കനയ്യക്ടുമാറിനും കൂട്ടാളികൾക്കുമെതിരെ ഡൽഹി പ്പോഴലീസ് കുറ്റപത്രം സമർപ്പിച്ചു

പ്രഥമ ഫിലിപ്പ് കൊട്ലെർ പ്രസിഡൻഷ്യൽ അവാർഡ് പ്രധാനമന്ത്രി ്നരേന്ദ്രമോദി ഏറ്റുവാങ്ങി

പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കൊല്ലം ബൈപ്പാസ് നാടിന് സമർപ്പിക്കും

ശബരിമലയിൽ മകരജ്യോതി ദർശന പുണൃത്തിൽ ഭക്തലക്ഷങ്ങൾ

ഏഷ്യാകപ്പ് ഫുട്ബോളിലെ നിർണായക മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ബഹ്റിനെ നേരിടും

രാജ്യദ്ദോഹ്കുറ്റം ചുമത്തിയാണ് കേസ്

യു മുൻ വിദ്യാർത്ഥിക്ളായ ഉമർ ഖലീദ് അനിർബൻ ഭട്ടാചാര്യ എന്നിവർക്കെതിരെയും പോലീസ് കുറ്റപത്രം തയ്യാറാക്കിയിട്ടുണ്ട്

യു ക്യാമ്പസിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ രാജ്യവിരുദ്ധ മുദ്രാവാകൃങ്ങൾ വിളിച്ചതിനാണ് ഇവർക്കെതിരേ കേസെടുത്തത് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് സുമിത് ആനന്ദ് കോടതിയുടെ പരിഗണനയ്ക്കായി നാളെ കുറ്റപത്രം കൈമാറും ജനവിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിയ്ക്കാൻ കനയ്യകുമാർ ജനക്കൂട്ടത്തോട് ആഹ്വാനം ചെയ്തതായും പോലീസ് ആരോപിച്ചിരുന്നു

കൊറിഗാവോൺ ഭീമ ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഇയാൾക്ക് മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്നും ആരോപണങ്ങളുണ്ട് ഇത് റദ്ദാക്കാനാണ് കോടതി വിസമ്മതിച്ചത് കേസിൽ നിലവിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഇടപെടില്ലെന്നും കോടതി വൃക്തമാക്കി എന്നാൽ ആനന്ദിന് ബോംബെ ഹൈക്കോടതി നൽകിയ ഇടക്കാല പരിരക്ഷ നാല് ആഴ്ച കൂടി സുപ്രീംകോടതി ദീർഘിപ്പിച്ച് നല്കി ചീഫ്ട് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസുമാരായ അശോക് ഭൂഷ്ണ്ട് എസ്

കൌൾ എന്നിവരടങ്ങുന്ന ബഞ്ചാണ് കേസ് പരിഗ്ണിച്ചത്

തനിക്കെതിരായ എഫ് ഐ

കഴിഞ്ഞ എട്ട് മാസക്കാലയളവിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത് ചില ഭക്ഷ്യവസ്തുക്കളുടെയും ഇന്ധനത്തിന്റെയും വിലകളിൽ ഉണ്ടായ അനുകൂലമായ മാറ്റമാണ് വിലസൂചികയിലെ ഇടിവിന് കാരണമെന്ന് ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നു

ന്യൂഡൽഹിയിലെ വസതിയിൽ വച്ച് ശ്രീ നരേന്ദ്രമോദി പുരസ്ക്കാരം ഏറ്റുവാങ്ങി രാജ്യത്തിന് വേണ്ടി പ്രധാനമന്ത്രി കാഴ്ചവച്ച മികച്ച നേതൃത്വപാടവമാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത് സാമ്പത്തികം സാമൂഹ്യം സാങ്കേതിക പ്പിദ്ച് എന്നീ മേഖലകളിൽ ശ്രീ

സാമൂഹ്യസേവനങ്ങൾക്ക് ഏർപ്പെട്ടുത്തിയ ആധാർ ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഡിജിറ്റൽ വിപ്ലവിത്തിന് തന്നെ തുടക്കമിട്ടതായി പ്രശസ്തി പത്രത്തിൽ പറയുന്നു

വൈകിട്ട് തിരുവനന്തപുരത്തെത്തുന്ന ശ്രീ നരേന്ദ്രമോദി ഹെലികോപ്ടർ മാർഗം ബൈപ്പാസ് ഉദ്ഘാടന വേദിയായ ആശ്രാമം മൈതാനത്തെത്തും തുടർന്ന് കന്റോൺമെന്റ് മൈതാനത്ത് സംഘടിപ്പിക്കുന്ന പൊതു സമ്മേളനത്തെ ശ്രീ

പിന്നീട് തിരുവനന്തപുരത്തേക്ക് പോകുന്ന പ്രധാനമന്ത്രി ശ്രീപദ്മനാഭക്ഷേത്രത്തിൽ ദർശനം നടത്തും കേന്ദ്ര പദ്ധതിയായ സ്വദേശി ദർശന് കീഴിലുള്ള വികസന പദ്ധതികളും ശ്രീ

കൊല്ലത്തെ ബൈപ്പാസ് ഉദ്ഘാടനവേദിയും ഹെലിപ്പാഡും സ്ഥിതിചെയ്യുന്ന ആശ്രാമം മൈതാനത്തും പരിസരത്തും സുരക്ഷ ശക്തമാക്കി

ഝാർസുഗുഡയിൽ ലോജിസ്റ്റിക്സ് പാർക്ക് രാജ്യത്തിനു സമർപ്പിക്കുന്ന അദ്ദേഹർ ബ്ലാംഗിർ ബിച്ചുപാലി റെയിൽവേ ലൈനും ഉദ്ഘാടനം ചെയ്യും സൊനേപൂരിലെ കേന്ദ്രീയ വിദ്യാലയത്തിന് സ്ഥിരം കെട്ടിടം പണിയുന്നതിന് ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവ്വഹിക്കും

ശൈത്യകാലത്തിന്റെ അവസാനമെന്നോണമാണ് ആഘോഷത്തെ കാണുന്നത് ശൈത്യകാല വിളവെടുപ്പിന്റെ സമാപനമെന്നോണമാണ് ആഘോഷങ്ങൾ നടത്തുന്നത്

പ്രകൃതിയേയും പാരമ്പര്യത്തേയും പ്രതിനിധീകരിക്കുന്ന ഈ ഉത്സവം സമൃദ്ധിയും മികച്ച ആരോഗ്യവും ജനങ്ങൾക്ക് നല്കട്ടെയെന്ന് പ്രപ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു മകരസരിക്ട്രാന്തി ഉത്തരായൻ ഭൊഗാലി ബിഹു എന്നിവയ്ക്ക് രൂഷ്ട്രടപതി രാംനാഥ് കോവിന്ദും ആശംസകളറിയിച്ചു ഗുജറാത്തിൽ ഉത്തരായൻ എന്നറിയപ്പെടുന്ന ഈ ഉത്സവം പട്ടം പറത്തിയാണ് ആഘോഷിക്കുന്നത്

ഭോഗി പാണ്ഡുവ എന്നറിയപ്പെടുന്ന ആദ്യദിനമായ ഇന്ന് എല്ലാ പഴയ വസ്തുക്കളും കത്തിച്ചുകളയുകയാണ് പതിവ്

കാർഷിക വിളവ് ഭക്ഷ്യയോഗ്യമാക്കി ദൈവങ്ങൾക്ക് സമർപ്പിച്ചാണ് കർണാടകയിലെ ആഘോഷങ്ങൾ

അസമിൽ വിളവെടുപ്പിന്റെ സമാപനശേഷമുള്ള ഉരുക ചടങ്ങളുകളാണ് ഇന്ന് നടക്കുന്നത്

നാളെയാണ് പുണ്യ സ്നാനത്തിന് തുടക്കമാകുന്നത് തീർത്ഥാടകർ വൻതോതിൽ പ്രയാഗ്രാജിലേക്ക് പ്രവഹിക്കുകയാണ്

ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത്യിനെതുടർന്ന് കൂടാരത്തിന് തീ പിടിച്ചതായാണ് റിപ്പോർട്ടുകൾ തീ നിയന്ത്രണവിധേയമാണെന്നും പ്രദേശം ശുചിയാക്കാനുള്ള് പ്രവർത്തനം തുടരുകയാണെന്നും ജില്ലാ പോലീസ് മേധാപ്പി വ്യക്തമാക്കി അഗ്നി ബാധയിൽ ആളപായമില്ല

ജെ പിയുടെ മുതിർന്ന നിയമസഭാംഗം ഗുലാബ് ചന്ദ് കട്ടാരിയ രാജസ്ഥാൻ നിയമസഭ പ്രോംടേം സ്പീക്കറായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു

മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരൺ സിംഗ് ദാബാനന്ദ സിംഗ് എം പി എന്നിവർ പങ്കെടുത്ത ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിലാണ് ശ്രീരാജ്നാഥ് സിംഗ് ഇക്കാര്യം പറഞ്ഞത്

ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളി സൂര്യേന്ദ്രൻ ബോർഡ് പ്രസിഡന്റ് മുതിർന്ന പോലീസ് ഉദ്യോഗൃസ്മർ എന്നിവർ ശബരിമല സന്നിധാനത്ത് സന്നിഹിത്ര്യി്രുന്നു

തുടർന്ന് തിരുവാഭരണം അയ്യപ്പവിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധനയ്ക്ക് നടന്ന തുറന്നപ്പോഴാണ് പൊന്നമ്പല മേട്ടിൽ മകരജ്യോതി തെളിഞ്ഞത് ഇതേസമയം ആകാശത്ത് മകര നക്ഷത്രവും തെളിഞ്ഞു അല്പസമയത്തിനകം മകരസംക്രമ പൂജ നടക്കും

ഇവരുടെ പുരധിവാസത്തിനായി ഗവണ്ണ്മെന്റിനു സാധ്യമാകുന്നതെന്തും ചെയ്യാൻ തന്റെ ഭരണകൂട്ട് ത്യ്യാറാകണമെന്നും അദ്ദേഹം അറിയിച്ചു ജമ്മുവിൽ ഒരു ചടങ്ങിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഗവർണർ മാലിക് ജനാധിപത്യ വ്യവസ്ഥിതിയ്ക്കായി തന്റെ ഭരണകൂടം തയ്യാറാണെന്ന് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനെക്കുറിച്ചുളള ചോദ്യത്തിനു മറുപടിയായി ഗവർണർ പ്രതികരിച്ചു

ബഹ്റിനെതിരെ സമനിലയെങ്കിലും നേടാനാ യാൽ ചരിത്രത്തിലാദൃമായി ഇന്ത്യ ഏഷ്യാ കപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിൽ കടക്കും നിലവിൽ ഗ്രൂപ്പ് എ യിൽ ആതി ഥേയരായ യു

ഇ യ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ

ഇ യോട് കീഴടങ്ങിയിരുന്നു